പ്രചാരണത്തിന് വ്വീറും വാശിയുമേറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാള് പാലക്കാട്ട് എത്തും ആഴക്കടൽ മത്സൃബന്ധനത്തിന് വിദേശ ട്രോളർ ന് അനുവദിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിങ്

ഡി

മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗും സി പിഐ എമ്മും തമ്മിൽ ധാരണയെന്ന് ബിജെപി അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ

ഒരു വോട്ടർ പുതിയ വിലാസത്തിൽ വോട്ട് ചേർക്കുമ്പോൾ പഴയ വോട്ട് ഇല്ലാതാകാനുള്ള സംവിധാനം ഇല്ലേ എന്നും കോടതി ചോദിച്ചു ഇതിനാവശൃമായ എന്ത് നടപടി സ്വീകരിക്കാനാവുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ കോടതിയെ അറിയിക്കണം പൌരന്മാരുടെ അവകാശം സംബന്ധിച്ചു ഗൌരവമുള്ള ഒരു വിഷയമാണിതെന്ന് പറഞ്ഞ ഹൈക്കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കും പ്രതിപക്ഷ നേതാവ് രമേശ്ശ് ചെന്നിത്തല നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെട്ടൽ

ത്ഷാൽ വോട്ടിലും ക്രമക്കേട് നടക്കുന്നുവെന്ന പുതിയ ആരോപീണവും അദ്ദേഹം ഉന്നയിച്ചു അനർഹരുടെ പട്ടിക്ട് സംസ്ഥാനത്തെ വോട്ടർ ്പട്ടികയിലെ അനർഹരെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടർമാർക്ക് നൽകിയ സമയപരിധി നാളെ അവസാനിക്കും നാളെ വൈകിട്ട് അഞ്ചിനകം പട്ടിക സമർപ്പിക്കാനാണ് ബൂത്ത് ലവൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യാജ വോട്ടുകൾ തടയാൻ നടപടി സ്വീകരിക്കാൻ ചുമതലയുള്ള ബിഹാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എച്ച്

വോട്ടുറപ്പിക്കാനുള്ള അവസാന ഘട്ട പ്രചാരണ തന്ത്രങ്ങൾ പയറ്റുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും

മണ്ഡലങ്ങളിലെ മുക്കിലും മൂലയിലും രാഷ്ട്രീയ പാർട്ടികളുടെ അനൌൺസ്മെന്റ് വാഹനങ്ങളുണ്ട്

വോട്ടിങ് യന്ത്രത്തിന്റെ മാതൃക വോട്ടർമാരെ പരിചയപ്പെടുത്തുക സ്ലിപ്പ് വിതരണം തുടങ്ങിയ ജോലികൾ ഉടൻ ആരംഭിക്കും

പാലക്കാട്ടെ പരിപാടിയിൽ ്അദ്ദേഹം പങ്കെടുക്കും ഈ മാസം രണ്ടിന് കോന്നിയിലും തീരുവന്ന്തപുരത്തും അദ്ദേഹം പ്രചാരണത്തിനെത്തും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പാലക്കാട് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് വോയിസ്

കൊല്ലം തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കായംകുളത്താണ് ആദ്യ പരിപാടി രാഹുൽഗാന്ധി അടുത്ത മാസം മൂന്ന് നാല് തീയതികളിൽ കേരളത്തിലേക്ക് വീണ്ടും എത്തും പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ രൺദീപ് സുർജേവാല സൽമാൻ ഖുർഷിദ് എന്നിവരും സംസ്ഥാനത്തുണ്ട് സിപിഐ എമ്മിന്റെ ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് എന്നിവർ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്

സി

ഐ

എൽ ദേശീയ പ്രസിഡന്റ് മുഹമ്മദ് സുലൈമാൻ ഇന്ന് കോഴിക്കോട്ട് എത്തും

സംസ്ഥാനം കരാറുണ്ടാക്കിയാലും ക്ട്രേന്ദ്രം അംഗീകരിക്കില്ല ഒട്ടേറെ മൽസ്യത്തൊഴിലാളികൾ പുരാതിയുമായി തന്നെ കണ്ടു ഗിരിരാജ് സിങ് തിരുവനന്തപുരത്ത് ്വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ജെ പി കേരളത്തിൽ അധികാരത്തിൽ എത്തിയാൽ രണ്ട് എഞ്ചിൻ ബലത്തിൽ വികസനം മുന്നോട്ട് പോകുമെന്ന് റെയിൽവേമന്ത്രി പിയൂഷ് ഗോയൽ ഉത്തരേന്തൃയിൽ കന്യാസ്ത്രീകൾ ട്രെയിനിൽ വച്ച് ആക്രമിക്കപ്പെട്ടു എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്നും അദ്ദേഹം കൊച്ചിയിൽ എൻ ഡി

ബി വി പി പ്രവർത്തകർ ആക്രമിച്ചു എന്നത് തെറ്റായ ആരോപണമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവം ഓരോ ദിവസവും കൂടി വരികയാണെന്നന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവായൂരിലും തലശ്ശേരിയിലും യു

എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന ബി ജെ

നേതാവിന്റെ പ്രസ്താവന നാക്കു പിഴ മാത്രമല്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്രവിഹിതം കുറച്ചപ്പോൾ കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ല

ഉദുമയിൽ മുസ്ലീം ലീഗ് സിപിഐ എമ്മിനെയും മഞ്ചേശ്വരത്ത് സി പിഐ എം ലീഗിനെയും പരസ്പരം സഹായിക്കുകയാണെന്നും അദ്ദേഹം കാസർകോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

എയ്ക്കും എതിരെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങളുടെ സമന്വയം വേണമെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി നയിക്കുന്ന പദയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഓരോ മണ്ഡലത്തിലും സജ്ജീകരിച്ചിട്ടുള്ള വോട്ടിംഗ് കേന്ദ്രത്തിൽ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചുവരെയുള്ള സമയത്ത് വോട്ടു ചെയ്യുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

വീടുകളിൽ പോളിങ് കേന്ദ്രത്തോട് സമാനമായ സജ്ജീകരണങ്ങൾ ഒരുക്കി സ്വകാരൃത നഷ്ടമാകാത്ത രീതിയിലാണ് വോട്ട് രേഖപ്പെടുത്താൻ സൌകര്യം ഒരുക്കുന്നത് വോട്ടർമാരെയും സ്ഥാനാർത്ഥികളെയും മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് പോളിംഗ് സംഘം വീടുകളിലെത്തുന്നത്

യന്ത്രങ്ങൾ അതത് മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോംഗ് റൂമുകളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇതേ കേന്ദ്രങ്ങളിൽതന്നെ മത്സരാർത്ഥികളുടെ വിവരങ്ങൾ ക്രമീകരിച്ച ശേഷം വീണ്ടും സ്ട്രോംഗ് റൂമുകളിലേക്ക് മാറ്റും

സി അടുത്ത മാസം എട്ടിന് ആരംഭിക്കുന്ന എസ് എസ് എൽ

എസ് എൽ സി പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും അതത് വിദ്യാഭ്യാസ ഓഫീസുകളിൽ എത്തിച്ചുകഴിഞ്ഞു

മുല്ലപ്രം ജുമാ മസ്ജ്ദിന്റും സ്മീപത്തെ മറിയു മൻസിലിലാണു കവർച്ച നടന്നത്

തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധൃതയുണ്ട്